നരേന്ദ്രമോദി ശ്രീലങ്കയിൽ പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയുമായി കൂടിക്കാഴ്ച നടത്തും

കൊച്ചിയിൽ നിപ വൈറസ് ബാധിത്നായ വിദ്യാർത്ഥിയുടെ നില കൂടുതൽ ട്രിമച്ച്പ്പെട്ടു പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് ആരോഗൃമന്ത്രി ന് കേരളത്തിൽ ട്രോളിങ് നീരോധനം ഇന്ന് അർധരാത്രി മുതൽ നിലവിൽ വരും

ശക്തിയാർജ്ജിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം ആലപ്പുഴയിൽ കടൽക്ഷോഭം ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ആവേശപ്പോരാട്ടം

പ്രസിഡന്റ് മൈത്രിപാല സിരി സേനയുടെ ക്ഷണമനുസരിച്ചാണ് ശ്രീ

പ്രസിഡന്റ്സ് സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിന് ഔദ്യോഗിക വരവേൽപ് നൽകും തുടർന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും പ്രതിപക്ഷനേതാവ് മഹീന്ദരാജപക്സെയുമായും തമിഴ് നാഷണൽ അലയൻസ് നേതാവായ സാംബൻതാനുമായും അദ്ദേഹം ചർച്ച നടത്തും തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനുമായാണ് പ്പ്ധാൻമന്ത്രിയുടെ ലങ്കൻ സന്ദർശനം

വിനോദസഞ്ചാരത്തിന്റെ വളർച്ചയ്ക്കുവേണ്ടി ഇരുരാജ്യങ്ങളും തമ്മിൽ ഒരു സ്ഥിരം പാസഞ്ചർ കാർഗോ ഫെറി സർവ്വീസ് തുടങ്ങുന്നത് വേഗത്തിലാക്കേണ്ടതിന്റെ ആവശ്യകതയും ശ്രീ

നിരോധനകാലത്ത് ബോട്ടുകൾ കടലിൽ ഇറങ്ങുന്നത് തടയുന്നതിനും നിരീക്ഷണസംവിധാന്റും ഉണ്ടാകുമെന്നും ഫിഷറീസ് വകുപ്പ് അറിയിച്ചു തീരദേശത്തെ പെട്രോൾപമ്പുകളുടെ പ്രവർത്തനം നിർത്തി വയ്ക്കാൻ ജില്ലാകളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ട്രോളിംഗ് നിരോധനം ഫലപ്രദമായും സമാധാനപരമായും നടപ്പാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഫിഷറീസ് വകുപ്പ് പൂർത്തിയാക്കിക്കഴിഞ്ഞു

മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ മത്സ്യ ഉത്പാദന പരിപാലന മേഖലയിൽ സംസ്ഥാനത്ത് നടക്കുന്നത് നിശബ്ദ വിപ്ലവമാണെന്നും മത്സ്യസമ്പത്തിൽ രണ്ട് ലക്ഷം ടണ്ണിന്റെ വർധന കഴിഞ്ഞ വർഷം ഉണ്ടായെന്നും മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ കൊല്ലത്ത് പറഞ്ഞു

പദ്ധതിയുടെ ഭാഗമായി തിരുവന്ന്ത്പൂരം എറണാകുളം കോഴിക്കോട് എന്നിവിടങ്ങളിൽ പ്രിദ്ദേശിക വിത്ത് ഉത്പാദന കേന്ദ്രങ്ങൾ തുടങ്ങുമെന്നും മന്ത്രി പ്റഞ്ഞു

വരും ദിവസങ്ങളിലും മഴ ശക്തമാകാൻ അനുകൂല സാഹചര്യമാണുള്ളതെന്നും അറിയിപ്പിൽ പറയുന്നു അതിനിടെ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം ശക്തിയാർജ്ജിക്കാൻ സാധ്യതയില്ലെന്ന നിരീക്ഷണത്തെത്തുടർന്ന് നാല് ജില്ലകളിൽ പ്രഖ്യാപിച്ച റെഡ് അലർട്ട് പിൻവലിച്ചിട്ടുണ്ട് ഇന്ന് കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം മലപ്പുറം ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു

നിലവിൽ ഏഴ് പേരാണ് രോഗ ലക്ഷണങ്ങളോടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലുള്ളത് നിപയുടെ വലിയ ആശങ്കയൊഴിഞ്ഞെങ്കിലും പ്രതിരോധ പ്രവർത്തനങ്ങളു മായി മുന്നോട്ട് പോവുമെന്ന് ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർത്തു

പൂനെയിൽ പരിശോധനയ്ക്ക് അയച്ച ഈ വിദ്യാർത്ഥിയുടെ മൂന്ന് സാമ്പിളുകളിൽ രണ്ടെണ്ണം നെഗറ്റീവാണ്

വൈറസിന്റെ ഉറ വിടം തേടിയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് മന്ത്രി

സ്കൂളുകളിൽ ബോധ വൽക്കരണ സന്ദേശങ്ങൾ നൽകുമെന്നും മന്ത്രി പറഞ്ഞു

യുമായ രാഹുൽ ഗാന്ധി കോഴിക്കോട് ജില്ലയിൽ പര്യടനം തുടങ്ങി